ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ലാതാ ക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശ്രമിക്കുകയാണെന്ന് ന്യൂനപ ക്ഷമോർച്ച സംസ്ഥാന പ്രസിഡണ്ട് നോബിൾ മാത്യു കുറ്റപ്പെടു ത്തി വിശ്വാസത്തിലെ കടന്നുകയറ്റത്തിനെതിരെ സംഘടന ശക്ത മായി മുന്നോട്ടു പോകു മെന്ന് അദ്ദേഹം കാസർകോട് ഹോസ്ദുർഗിൽ മുന്നറിയിപ്പ് നൽകി

സോഷ്യൽ മീഡിയാ വഴി മത വികാരം പ്രണപ്പെടുത്തുന്ന തരത്തിൽ പോസ്റ്റുകൾ ഇട്ടതിന് എറ്ണാകുളം സ്വദേശിനി രഹ്ന ഫാത്തിമക്കെതിരെ പത്തനംതിട്ട പ്രോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം പൊലീസ് ്സുരക്ഷയിൽ ശബരിമല നടപ്പന്തൽ വരെ എത്തിയ അവർ അയ്യപ്പഭൂക്തർുടെ പ്രതിഷേധത്തെ തുടർന്ന് ശബരിമല യാത്ര അവസ്ാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു സരിതാനായരുടെ പീഡന പരാതിയിൽ മുൻമുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണു ഗോപാലിനും എതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തു പ്രത്യേക അന്വേഷണ സംഘത്തിന് സരിത നൽകിയ പരാതിയിലാണ് നട പടി ഇന്നലെ അന്തരിച്ച മഞ്ചേശ്വരം എം എൽഎയും മുസ്ലിം ലീഗ് നേതാവുമായ പി ബി അബ്ദുൾറസാഖിന്റെ മൃതദേഹം വൻ ജനാ വലിയുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രി ഖബറടക്കി ആലമ്പാടി ജുമാമസ്ജിദ് ഖബർസ്ഥാനിൽ പത്തേകാലോടെ പൂർണ ഔദ്യോ ഗിക ബഹുമതികളോടെയായിരുന്നു ഖബറടക്കം മന്ത്രിമാരായ ഇ ചന്ദ്രശേഖരൻ രാമചന്ദ്രൻ കടന്നപ്പളളി ഡോ കെ ടി ജലീൽ തുട ങ്ങിയവരും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല എംപിമാർ എംഎൽഎ മാർ തുടങ്ങിയവരുമ ടക്കം നേതാക്കൾ അന്തിമോപചാരമർപ്പിച്ചു

ദേശീയ പൊലീസ് സ്മാരകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പി ക്കും

തുലാമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമലയിൽ നാളെ നട അടയ്ക്കും സരിതാനായരുടെ പരാതിയിൽ ഉമ്മൻചാണ്ടിക്കും കെ സി വേണുഗോപാലിനുമെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തു